രാജ്യത്തെ ആദ്യ ഡ്രൈവർ രഹിത മെട്രോ ട്രെയിൻ സർവ്വീസും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ത മുഖ്യമന്ത്രിയുടെ കേരള പര്യടന പരിപാടി ഇന്ന് കോഴിക്കോട്ട്

നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിലെ സംഗോളയിൽ നിന്ന് പശ്ചിമബംഗാളിലെ ഷാലിമാറിലേക്ക് പഴങ്ങളും പച്ചക്കറികളും എത്തിക്കുന്ന സർവ്വീസ് വിഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും

കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലും ചടങ്ങിൽ പങ്കെടുക്കും കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു രാജ്യത്തെ ആദ്യ കിസാൻ റെയിൽ സർവ്വീസിന് തുടക്കമിട്ടത് രും പ്രധാനമന്ത്രി രാജ്യത്തെ ആദ്യ ഡ്രൈവർ രഹിത മെട്രോ ട്രെയിൻ സർവ്വീസും നാളെ വിഡിയോ കോൺഫറൻസിംഗിലൂടെ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും ഡൽഹി മെട്രോയിലെ മജന്ത ലൈനിലാണ് പൂർണ്ണമായി സ്വയം നിയന്ത്രിത സംവിധാനം നിലവിൽ വരുന്നത് മാനുഷിക തെറ്റുകൾ ഒഴിവാക്കി സർവ്വീസ് നടത്താൻ പുതിയ ട്രെയിനുകൾക്ക് കഴിയും

പിങ്ക് ലൈനിൽ അടുത്ത വർഷം പകുതിയോടെ ഡ്രൈവറില്ലാ ട്രെയിനുകൾ സർവ്വീസ് ആരംഭിക്കും രുര ക്രൈസ്തവ സഭകൾക്കിടയിലെ തർക്കം പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി നടത്തുന്ന ചർച്ച നാളെ തുടങ്ങും നാളെ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളുമായും മറ്റന്നാൾ യാക്കോബായ സഭാ പ്രതിനിധികളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും സുപ്രീം കോടതി വിധിക്ക് ശേഷവും സഭാ തർക്കം തുടരുന്ന സാഹഛര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇപെടൽ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയുടെ ഇടപെടലിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചക്ക് വഴിയൊരുങ്ങിയത്

ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണവും കേൾക്കാം

കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ അഞ്ഞൂറിലേറെപ്പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം

രുര കോട്ടയം പാല മരിയ സദനിലെ ഒരു അന്തേവാസി കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു

നാരായണൻകുട്ടി ആകാശവാണിയോട് പറഞ്ഞു

രാവിലെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ വിവിധ മേഖലകളിലെ വ്യക്തികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും

രുര തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്താനെത്തിയ എ ഐ

സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് തിരുവനന്തപുരത്ത് പാർട്ടി നേതാക്കളുമായി വെവ്വേറെ ചർച്ച നടത്തും

എൽ എ മാർ പാർട്ടിയുടെ വിവിധ തലങ്ങളിലെ നേതാക്കന്മാർ തുടങ്ങിയവരുമായാണ് ചർച്ച ഇപ്പോഴത്തെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാവി പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് താരിഖ് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു രുര രാജ്യത്ത് ഈ വർഷം അന്താരാഷ്ട്ര ബ്ലൂഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചുകളിൽ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഓൺലൈനായി ഔദ്യോഗിക പതാക ഉയർത്തൽ ചടങ്ങ് നടത്തും കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പതാക ഉയർത്തും ലോകത്തെ ഉയർന്ന പാരിസ്ഥിതിക ഗുണനിലവാരവും വൃത്തിയും പുലർത്തുന്ന ബീച്ചുകൾക്കാണ് ബ്ലൂഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്

ട്വിറ്ററിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് രും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ ഖത്തർ സന്ദർശനം ഇന്നാരംഭിക്കും ഇന്നും നാളെയുമായി അദ്ദേഹം ഖത്തർ ഷെയ്ഖുമായും ഉപ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി എന്നിവരുമായും ചർച്ചകൾ നടത്തും

രുമ വെള്ളിയാഴ്ച അന്തരിച്ച ചലച്ചിത്ര നടൻ അനിൽ നെടുമങ്ങാടിന് കലാലോകത്തിന്റെ യാത്രാമൊഴി

വൈകിട്ട് ഏഴരയോടെ തിരുവനന്തപുരത്ത് ഭാരത് ഭവനിൽ പൊതുദർശനത്തിനുവെച്ച ഭൌതികശരീരത്തിൽ ഒട്ടേറെ പേർ ആദരം അർപ്പിക്കാൻ എത്തിയിരുന്നു

രാവിലെ അധ്യക്ഷരെയും ഉച്ചയ്ക്ക് ഉപാധ്യക്ഷരെയും വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും ഓപ്പൺ ബാലറ്റ് മുഖേനയാണ് തിരഞ്ഞെടുപ്പ്

മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും പാർലമെന്ററി പോർഡ് ചെയർമാനുമായ സാദിഖലി ശിഹാബ് തങ്ങളാണ് ഇവരുടെ പേരുവിവരം പുറത്തുവിട്ടത്

മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്യും കുരുക്ഷേത്ര പ്രകാശൻ കേസരി പബ്ലിക്കേഷൻ എന്നിവ പ്രസിദ്ധീകരിക്കുന്ന ഏഴ് പുസ്തകങ്ങളും അദ്ദേഹം പ്രകാശനം ചെയ്യും എഴുത്തുകാരൻ പി ആർ നാഥൻ അധ്യക്ഷനായിരിക്കും രും തേങ്കുറിശ്ശി അനീഷ് വധക്കേസിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തും പൊലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന അനീഷിന്റെ ഭാര്യാപിതാവ് പ്രഭുകുമാർ ഭാര്യയുടെ അമ്മാവൻ സുരേഷ് എന്നിവരുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു രുഭ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇടുക്കി പൂപ്പാറയ്ക്ക് സമീപം കാട്ടാന വാഹനം ആക്രമിച്ചു വാഹനത്തിലുണ്ടായിരുന്ന നാലുപേർ ഓടി രക്ഷപ്പെട്ടു തേക്കടി കൊച്ചി പാതയിലെ ഉപ്പുതറ പത്തായപ്പാറയ്ക്ക് സമീപം വിനോദസഞ്ചാരികളുടെ ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് മൂന്ന് യുവാക്കൾക്ക് പരിക്കേറ്റു

മാലിന്യങ്ങൾ നീക്കിയശേഷം മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കും